രാജ്യത്ത് ഓക്സിജൻ ലഭൃത ഉൾപ്പെടെയുള്ള കോവിഡ് ചികിൽസാ സൌകരൃങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി

കെ ശൈലജ

സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഉത്തരവ്

ആവശ്യത്തിന് ഓക്സിജൻ വിതരണം ചെയ്യുന്നതിന് മന്ത്രാലയങ്ങളും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഉടനീള സഹകരണം ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്ന് ശ്രീ

വർദ്ധിച്ചു വരുന്ന ഓക്സിജന്റെ ആവശ്യകത നിറവേറ്റുന്നതിനായി മെഡിക്കൽ ഓക്സിജന്റെ ഉത്പാദനം ഉയർത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി

രാജ്യത്തെ കോവിഡ് സ്ഥിതി അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട്

കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു

ഉദ്യാനത്തിന് സമീപം കൊവിഡ് ടെസ്ററ് നടത്താൻ ഉള്ള സൌകര്യാ ഉണ്ടായിരിക്കുമെന്നും കളക്ടർ അറിയിച്ചു

റെയിൽവേ രാജ്യത്തെ ട്രെയിൻ യാത്രികർക്ക് റെയിൽവേ മുഖാവരണം നിർബന്ധമാക്കി കോവിഡ് രണ്ടാപ്പ തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുന്നതിന്റെ പശ്ചാത്തലത്തില്ലാണ് മുൻകരുതൽ നടപടി

കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഇന്ന് നടത്തിയ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ്

കൂടാതെ നാലിടങ്ങളിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പും നടക്കുന്നുണ്ട്

സംസ്ഥാന സർക്കാരിന്റെയോ സി ബി എസ്

സി എസ് സി തുടങ്ങിയ കേന്ദ്ര പരീക്ഷാ ബോർഡുകളുടെയോ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് ഉത്തരവ് ബാധകം

തൃശൂർ പൂരം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി രാവിലെ പൂജ ചെയ്ത കൊടിക്കൂറ തന്ത്രിമാർ ക്ഷേത്രത്തിനു പുറത്തേക്ക് എത്തിച്ചു തുടർന്ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും പിന്നീട് പാറമേക്കാവിലും കൊടിയേറ്റ് നടത്തി

പൂരത്തിന് തുടക്കം കുറിച്ച് അയ്യന്തോൾ കണിമംഗലം ലാലൂർ കാരമുക്ക് നെയ്തലക്കാവ് ചെമ്പൂക്കാവ് ചൂരക്കോട്ടുകാവ് പനമുക്കംപിള്ളി എന്നിങ്ങനെ എട്ട് ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടന്നു

എഫ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്ണെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയ്ക്ള്ള് എ

കോവിഡിനെതിരായ കേരളത്തിന്റെ പോരാട്ടത്തിന് കരുത്തുറ്റ നേതൃത്വം നെൽക്കുന്ന മുഖൃമന്ത്രി പിണറായി വിജയനെ വൃക്തിപരമായി തേജോ്വധം ചെയ്യാനും അപഹസിക്കാനുമുള്ള നീക്കം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ച മറയ്ക്കാൻ സിപിഎം കേന്ദ്ര മന്ത്രി വി മുരളീധരനെ ആക്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ

ജനങ്ങൾക്ക് മാതൃകയാവേണ്ട മുഖ്യമന്ത്രി എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ച് പ്രവർത്തിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് സിപിഎം മുരളീധരനെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് വിമുരളീധരനെ വേട്ടയാടാൻ സിപിഎമ്മിനെ ബിജെപി അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു

എം ന്റെ രണ്ട് രാജ്യസഭാ സ്ഥാനാർത്ഥികളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം സ്ഥാനാർത്ഥികളാണെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത പ്രതിച്ഛായ വർധിപ്പിക്കാൻ പിആർ ഏജൻസികൾക്ക് പിന്നിൽ കഴിഞ്ഞ അഞ്ചുവർഷമായി പ്രവർത്തിച്ച മുഖ്യ ബുദ്ധികേന്ദ്രങ്ങളാണ് ഇരുവരും ഇവരുടെ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പ്രത്യുപകാരമാണ് രാജ്യസഭാ സീറ്റെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി വിധി വ്യവസായ ശാലകളിൽ രാത്രിയും പ്രകലും പ്രവർത്തിക്കേ ണ്ടിവരുന്ന തസ്തികകളിൽ സ്ത്രീ സുരക്ഷയുടെ പേരിൽ വനിതകൾക്ക് നിയമനം നിഷേധിക്കരുതെന്ന് കേരള ഹൈക്കോടതി വിധി കേരള വനിതാ കമ്മിഷ്ടൻ സ്ാഗതം ചെയ്തു